തയ്യാറെടുപ്പു കൊണ്ട് മറികടക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

കാര്യക്ഷമമാണെന്ന് ഉറപ്പു വ്യരുത്തിയതായി പ്രധാനമന്ത്രി

ഇന്നലെ ഏറ്റവും ക്ലൂട്ടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചു പ്രതിരോധ നടപടിക്ൾ കൂടുതൽ കർശനമാക്കി

ഭേദഗതികൾക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം

ഡൽഹി ക്യാപിറ്റൽസിന് ജയം

കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ രാത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കോവിഡ് വ്യാപനം തടയുന്നതിന് മൈക്രോ കണ്ടെയിൻമെന്റ് സോണുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം സാമ്പത്തിക പരിപാലനത്തിനൊപ്പം പൌരന്മാരുടെ ആരോഗൃ പരിപാലനത്തിനും പ്രാമുഖ്യം നൽകും രാജ്യത്ത് ഓക്സിജന്റെ ആവശ്യം വർദ്ധിച്ചിട്ടുണ്ടെന്നും സ്വകാരൃ പങ്കാളിത്തതോടെ ആവശ്യമായ ഓക്സിജൻ ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

്രഅവർക്കാവശ്യമുള്ള ചികിത്സാ സൌകര്യങ്ങളും പ്രതിരോധക്ടൂത്തിവയ്പ്പുകളും ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി സംസ്ഥാനിങ്ങ്ളോട് ആവശ്യപ്പെട്ടു

രാജ്യ്ത്ത് ് തദ്ദേശീയമായി രണ്ട് വാക്സിനുകൾ വികസിപ്പിച്ചത്രായും ലോകത്തെ ഏറ്റവും വലിയ വാക്സിൻ യജ്ഞമാണ് ് രാജ്യത്ത് നടന്നു വരുന്നതെന്നും ശ്രീ

് കോവിഡ് മഹാമാരിയെ ഇന്ത്യ പരാജയപ്പെടുത്തുമെന്നും ് അതിനായി എല്ലാവരുടെയും സഹായം ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു

രാജ്യത്തുടനീളമുള്ള വാക്സിൻ നിർമ്മാതാക്കളുമായി വീഡിയോ കോൺഫറൻസിങിലൂടെ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി

വാക്സിൻ നിർമ്മാണ വിതരണത്തിൽ പൊതു സ്വകാരൃ പങ്കാളിത്തം ഉറപ്പാക്കുകയും ഫലപ്രദമായ വാക്സിൻ ലഭ്യമാക്കുന്നതിനുള്ള അന്തരീക്ഷം സംജാതമാക്കുകയും ചെയ്തതായി അദ്ദേഹം വൃക്തമാക്കി ഈ മേഖലയിൽ വാക്സിൻ നിർമ്മാതാക്കൾ കൈവരിച്ച നേട്ടങ്ങളെ ശ്രീ

വരും ദിവസങ്ങളിൽ വാക്സിൻ യജ്ഞത്തിൽ സ്വകാര്യമേഖലയുടെ കൂടുതൽ പങ്കാളിത്തമുണ്ടാകുമെന്നും ഇക്കാര്യത്തിൽ വാക്സിൻ നിർമ്മാണമേഖലയും ആശുപത്രികളും തമ്മിലുള്ള ഏകോപനം അനിവാരൃമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അടുത്തമാസം ഒന്ന് മുതൽ രാജ്യത്തെ പ്രായപൂർത്തിയായ എല്ലാവർക്കും വാക്സിൻ നൽകാനുള്ള സർക്കാരിന്റെ തീരുമാനത്തെ മരുന്നു നിർമ്മാണ കമ്പനികൾ സ്വാഗതം ചെയ്തു ക്രുഉത്പാദന വർദ്ധന വൃത്യസ്ത വാക്സിനുകൾക്കായുള്ള ഗ്ദ്വേഷണങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ചും ചർച്ച ചെയ്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി കോവിഡ് സാഹചര്യങ്ങൾ വിലയിരുത്താൻ സൈനിക തലവൻമാരുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും നടത്തിയ ചർച്ചയിലാണ് രാജ്യരക്ഷാമന്ത്രിയുടെ നിർദ്ദേശം

ഇതുവഴി വിവിധ സംസ്ഥാന ങ്ങളിലേക്ക് ഓക്സിജൻ സിലിണ്ടറുകൾ ഉൾപ്പെടെയുള്ള അവശ്യസാധനങ്ങൾ എത്തിക്കും കഴിഞ്ഞ അടച്ചുപൂട്ടൽ കാലത്തും അവശ്യ വസ്തുക്കളുമായി റെയിൽവേ സേവനം നടത്തിയിരുന്നു

എറണാകുളം കോഴിക്കോട് മലപ്പുറം തൃശൂർ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത്

രോഗവ്യാപനം രൂക്ഷമാണെങ്കിലും സമ്പൂർണ അടച്ചുപൂട്ടലും വാരാന്ത്യ അടച്ചുപൂട്ടലും നടപ്പാക്കേണ്ടെന്നാണ് തീരുമാനം ഇന്നലെ ചീഫ് സ്രെകട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല അവലോകന സമിതി യോഗത്തിന്റേതാണ് തീരുമാനം മറ്റു സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള ജീവനക്കാരെയും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നിയോഗിക്കാനും ധാരണയായി

പൊതുവിപണിയിലേക്ക് പ്രത്യേക കാട്ട അനുവദിക്കുകയും അതിന് താങ്ങാവുന്ന വില നിശ്ചയിക്കുകയുമാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു

ഒരാഴ്ചക്കാലത്തേക്കാണ് നിയന്ത്രണം

സർക്കാരിന്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനും നികുതിദായകരുടെ പരാതികൾക്ക് പരിഹാരം കണ്ടെത്താനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ബംഗ്ലാദേശ് ബ്രസീൽ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള വിവിധ ധാരണാപത്രങ്ങൾക്കും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി

എഫീൽ അംഗങ്ങളായത്

എൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം ആറ് വിക്കറ്റിനാണ് ഡൽഹിയുടെ ജയം